രാഷ്ട്രീയ കേരളത്തിന്റെ പ്രണാമം ഭൌതികദേഹം ഇന്ന് കോട്ടയത്തും പാലായിലും പൊതുദർശനത്തിന് വയ്ക്കും

ഐ

സ്വതന്ത്രവും നീതിയുക്തവുമായ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾപൂർത്തിയായി വിശദാംശങ്ങളുമായി സീന ആന്റണി

ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് മേഘാലയ മിസോറം നാഗാലാന്റ് സിക്കിം ആൻഡമാൻ നിക്കോബിട്ടർ ലക്ഷദ്വീപ് തെലങ്കാന ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ എല്ലാ മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിലാണ് വോട്ടെടുപ്പ് ഇപ്പിയ്ക്ക് പുറമെ അസ്സം ബീഹാർ ഛത്തീസ്ഗഡ് ജമ്മു കശ്മൂർ മഹാരാഷ്ട്ര മണിപ്പൂർ ഒഡീഷ ത്രിപുര ഉത്തർപ്രദേശ് പശ്ചിമിബ്ഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ മണ്ഡലങ്ങളിലും നാളെയ്യാണ് പോട്ടെടുപ്പ് ആന്ധ്രാപ്രദേശ് സിക്കിം അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാന നിയമസഭകളിലേക്കും ഒറ്റഘട്ടമായി നാളെ പോളിംഗ് നടക്കും

ആദ്യഘട്ടം തിരഞ്ഞെടുപ്പിലെ പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചു സമ്മതിദായകരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികളും കക്ഷിനേതാക്കളും ന്യൂസ് ഡെസ്ക് ആകാശവാണി

വോട്ടെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ സുരക്ഷ മുൻ കരുതൽ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കമ്മീഷൻ അറിയിച്ചു

എന്നാൽ ഇടതു തീവ്രവാദം ശക്തമായ വടക്കും കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സമയക്രമത്തിൽ വ്യത്യാസം വ്യർുത്തിയിട്ടുണ്ട്

എന്നാൽ ഔട്ടർ മണിപ്പൂർ നാഗാലാന്റ് മേഘാലയ എന്നിവിടങ്ങളിൽ ഏഴുമണിക്ക് തുടങ്ങി വൈകിട്ട് നാലിന് വോട്ടെടുപ്പ് അവസാനിക്കും

ജെ പി നേതാക്കൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തി മുൻ കേന്ദ്രമന്ത്രി പ്രഹ്താദ് പട്ടേൽ മേയർ സ്വാതി ഗോഡ്ബൊലെ എന്നിവരും ഇവരിൽ ഉൾപ്പെടുന്നു ജബൽപൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി രാകേഷ് സിങിനും ചട്ടലംഘനം നടത്തിയതിന് ജില്ലാ കളക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു കോൺഗ്രസ് പ്രവർത്തകർക്കു ജോലി വാഗ്ദാനം ചെയ്തതിന്റെ പേരിൽ മന്ത്രി പി

ശർമ്മയ്ക്കെതിരെയും ഈ മാസം ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു

മുൻ ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറിന്റെ നിര്യാണത്തെ തുടർന്ന് പനാജിയിൽ സ്ഥാനം ഒഴിഞ്ഞ് കിടക്കുകയാണ്

എം കെ എം

എ മാരായ ആർ കനകരാജിന്റെയും എ

ബോസിന്റെയും നിര്യാണത്തെ തുടർന്നാണ് തമിഴ്നാട്ടിലെ സൂളൂരിലും തിരുപ്പരൻ കുണ്ഡ്രത്തിലും ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്

ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേള വിവേകപൂർവ്വം ചിന്തിക്കാനും വിലയിരുത്താനും പ്രവർത്തിക്കാനുമുളള സമയമാണെന്നും അദ്ദേഹം പറഞ്ഞു

ബി

ഒരു റിപ്പോർട്ട്

നിക്ഷേപത്തിലെ ഗണ്യമായ വർധനയും ഉപഭോഗ രംഗത്തെ ത്വരിത മുന്നേറ്റവും വളർച്ചയ്ക്ക് ഏറെ സഹായകമായതായി ഏറ്റവും ഒടുവിൽ പുറപ്പെടുവിച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നു

എഫിന്റെയും ലോകബാങ്കിന്റെയും വാർഷിക യോഗത്തിനു മുന്നോടിയായാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് നിക്ഷേപാനുകൂല സാഹചര്യങ്ങളും നടപടി ക്രമങ്ങളിലെ ലഘൂകരണവും നേരിട്ടുള്ള നിക്ഷേപം വർധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്

ഗവൺമെന്റ് ആവിഷ്ക്കരിച്ച പണനയവും വളർച്ചയെ വേഗത്തിലാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു

സംസ്കാരം നാളെ വൈകിട്ട് പൂർണ ഔദ്യോഗിക ബ്ഹുമതികളോടെ പാലാ കത്തീഡ്രൽ പള്ളിയിൽ നടക്കും കൊച്ചിയിൽ നിന്ന് രാവിലെ കോട്ടയത്ത് എത്തിക്കുന്ന ഭൌതിക ദേഹം കേരളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും തുടർന്ന് തിരുന്ക്കര മൈതാനത്തും പൊതുദർശനത്തിന് ഉച്ചയ്ക്കു് ശേഷം പാലായിലെ വസതിയിലേയ്ക്ക് വയ്ക്കും

ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്ഥകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കെ

മാണി ഇന്നലെ വൈകിട്ടോടെയാണ് അന്തരിച്ചത്